മനുഷ്യനെ ബഹിരാകാശത്ത് അയയ്ക്കുന്ന ഗഗൻയാൻ ദൌതൃത്തിന് മുന്നോടിയായി രണ്ട് ആളില്ലാ ബഹിരാകാശദൌതൃങ്ങൾ നടത്തുമെന്ന് ഐ എസ് ആർ ഒ

കേരള ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ ഗവൺമെന്റ് നൽകിയത് വ്യാജ സത്യവാങ്മൂലമെന്ന് ബിജെപി സുപ്രീംകോടതിയെ കബളിപ്പിക്കാൻ നടത്തിയ ശ്രമം ലജ്ജാകരമെന്ന് കോൺഗ്രസ്

നിക്ഷേപസൌഹൃദ അന്തരീക്ഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നേറുകയാണ് ഇന്ത്യയുടെ ലക്ക്ഷ്യുട്ടിമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുപ്പു കൂടുതൽ വിവരങ്ങളുമായി ഉദയ്ക്ടുമാർ

ചരക്ക് സേവന നികുതി നിലവിൽ വന്നതോടെ വിനിമയ ചെലവ് കുറയ്ക്കാൻ കഴിഞ്ഞതായും നികുതി ഘടന ഏറെ ലളിതവത്കരിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്ന തിനായി ഘടനാപരമായ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെൻറ് നടപടികൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഗോള ധനകാരൃ സ്ഥാപനങ്ങളായ ലോകബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി മൂഡീസ് തുടങ്ങിയവ ഇന്ത്യൻ സമ്പദ്വൃവസ്ഥയിൽ വിശ്വാസം അർപ്പിച്ച് കഴിഞ്ഞു നവഭാരതം കെട്ടിപ്പടുക്കുന്ന തിനായി റോഡ് റെയിൽ വ്യോമ തുറമുഖം തുടങ്ങിയ അടിസ്ഥാന സൌകരൃങ്ങൾ വർദ്ധിപ്പിക്കുകയും ഡിജിറ്റൽ ശൃംഖല ടെലികോം ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്ത് ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണെ ന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ പ്രതിപാദ്യ വിഷയം

മഹാത്മാഗ്രാൻഡി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ കൃഷിയൂമായി ബന്ധിപ്പിക്കാൻ എൻ ഡി എ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൂടെ കാർഷിക ചെലവ് കുറയ്ക്കുന്നതിനും ത്മൊഴിലവ്സരം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്ന് വീരേന്ദ്രസിട്ട് പറഞ്ഞു

കരുത്തുറ്റ ഇന്ത്യയെ വാർത്തെടുക്കാനാണ് എൻ

ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ശ്രീമതി ഇറാനി ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു പ്രധാനമന്ത്രി റോസ്ഗർ പ്രോത്സാഹൻ യോജന ആയുഷ്മാൻ ഭാരത് യോജന തുടങ്ങിയ ഗവൺമെന്റ് പദ്ധതികളെ ലോകാരോഗ്യ സംഘടന പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ പോലും പ്രകീർത്തിച്ചിട്ടുണ്ടെന്നും ശ്രീമതി ഇറാനി പറഞ്ഞു

എസ് ആർ ഒ ചെയർമാൻ ഡോ

ബഹിരാകാശ ഗുര്പ്പേഷണ മേഖലയെ ആധുനികവത്കരിക്കുന്നതിന് നിരവ്വുമി പിദ്ധതികൾ ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായും ആദ്ദേഹം പറഞ്ഞു

അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട പണമിടപാടിലാണ് അഖിലേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്

ബി

അതേസമയം അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ടകേസിൽ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ ബി ചന്ദ്രകല ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് സമൻസ് അയച്ചു കേസിൽ അടുത്തയാഴ്ച അവരെ ചോദ്യം ചെയ്യും

സ്വദേശ ജില്ലകളിൽ ജോലിയെടുക്കൂന്നവർുടെ കാര്യത്തിലും ഉടൻ തീരുമാനമെടുക്കണമെന്നും നീർദ്ദേശമുണ്ട്

തെരഞ്ഞെടുപ്പ് വേളയിൽ ലഹരിയുടെ ഒഴുക്ക് തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന അധികൃതരോട് കമ്മീഷൻ നിർദ്ദേശം വച്ചു

ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയെ കബളിപ്പിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമം ലജ്ജാകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

പക്ഷേ ഈ സ്ത്രീകളെ മാധ്യമങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെന്നാണ് തെളിഞ്ഞത് ആ നിലയക്ക് സുപ്രീംകോടതിയിൽ എന്തിന് തെറ്റായ വിവരം നൽകി എന്നതിന് മുഖ്യമന്ത്രി വിശദീകരണം നൽകണമെന്നും ശ്രീ

ശബരിമലയിൽ വെർചൽ ക്യൂവിനു വേണ്ടി സി

എം പ്രവർത്തകൾ രജിസ്ട്രർ ചെയ്യിപ്പിച്ച യുവതികളുടെ വിവരങ്ങളാണ് ഗവൺമെന്റ് സത്യവാങ്മൂലം എന്ന പേരിൽ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചതെന്ന് ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള

ശ്രീധരൻപിള്ളി ആരോപിച്ചു

സാമ്പത്തിക പിന്നാക്ക അവസ്ഥ സംവരണത്തിന് അടിസ്ഥാനമായി പരിഗണിക്കാൻ പാടില്ല എന്നതാണ് പാർട്ടി സംഘടനാ സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ ആർ

ഭാരതി സമർപ്പിച്ച ഹർജിയിലെ വാദം

എങ്കിലും സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി സേനാവക്താവ് പറഞ്ഞു തീവ്രവാദികൾക്കു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു

ആള്പ്ട്യുമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടില്ല

ധനകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി സി

കാണാൻ റിംഗ് റോഡിന്റെ നിർമ്മാണം സഹായിക്കുമെന്ന് കരുതുന്നു

ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മഞ്ഞിനടിയിൽ പെട്ടതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന ലോകത്തെ ഏറ്റവും ഉയരമുള്ള ഗതാഗത യോഗ്യമായ റോഡുകൾ ഉള്ള പ്രദേശമാണ് ഇത് പൊലീസും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്

മ്രീച്ചപ്പരിൽ ആക്രമണത്തിന് ഉത്തരവാദിയായ വൃക്തിയും ഉൾപ്പെടുന്നു